ഇളവുകൾ പ്രാബല്യത്തിൽ കെ എസ് ആർ ടി സി ജില്ലകളിൽ നാളെ മുതൽ സർവ്വീസ് നടത്തും സ്വകാര്യ ബസ് ഓടില്ലെന്ന് ബസ്സുടമകൾ

വൈകിട്ട് തിരൂരിൽ ്നിന്ന് യാത്ര തിരിക്കും

ഉം പുൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധൃത ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലെർട്ട് ലോക്ഡൌൺ ഇളവുകൾ സംസ്ഥാനത്ത് ലോക്ഡൌൺ നാലാംഘട്ടത്തിൽ കേന്ദ്ര നിർദ്ദേശ അനുവദിച്ച ഇളവുകൾ പ്രാബല്യത്തിൽ

എസ് ആർ ടി

പരമാവധി ഹ്രസ്വദൂര സർവ്വീസുകൾ നടത്തും നാളെ രാവിലെ ഏഴ് മണിക്കാണ് സർവ്വീസ് ആരംഭിക്കുന്നത്

ഇളവുകൾ ലഭിച്ചതിനെ തുടർന്ന് പലയിടത്തും സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറങ്ങിയിട്ടുണ്ട്

അമ്പത് ശതമാനം ആളുകളു മായി ബസ്സ് ഓടുന്നത് ലാഭകരമല്ലെന്നും സർക്കാരിനോട് ചോദിച്ചത് ഇരട്ടി ബസ് ചാർജ് വർദ്ധനയാണെന്നും ബസ്സുടമകൾ പറഞ്ഞു ഇരുപത് രൂപയെങ്കിലും കുറഞ്ഞ യാത്രാക്കൂലി വേണമെന്നായിരുന്നു ബസ്സുടമകളുടെ ആവശ്യം അതേസമയം സ്വകാര്യ ബസ്സുടമകൾ സാഹചര്യം മനസിലാക്കണമെന്നും നിഷേധാത്മക നിലപാട് സ്വീകരിക്കരുതെ ന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

സൌദി അറേബ്യ യു

ഇ കുവൈറ്റ് കാലാലംപൂർ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രവാസികളെ യാണ് നാട്ടിലെത്തിക്കുന്നത് രണ്ട് വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത്

റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുമുള്ള വിമാനങ്ങളിൽ മുന്നൂറോളം യാത്രക്കാരുണ്ടാകും

കൂടുതൽ വിവരങ്ങളു മായി കണ്ണൂരിൽ നിന്നുകളും ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ

കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർബാബു

കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രവികുമാർ

ട്രിച്ചി പുതുക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഴകൃഷിക്കാണ് നാശമുണ്ടായത്

കൂടുതൽ വിവരങ്ങളുമായി ആക്കൃശ്പ്പാണി കൊച്ചി ലേഖകൻ എൻ

ഇതിൽ മൂന്ന് പേർ എറണാകുളം ജില്ലക്കാരും ഒരാൾ വീതം തൃശ്ശൂർ കോട്ടയം ജില്ലക്കാരുമാണ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

ലോക്നാഥ് ബെഹ്റ കേരളത്തിൽ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുന്നത് ഉറപ്പാക്കാനായി എല്ലാ നഗരങ്ങളിലും പോലീസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു കണ്ടെയ്ൻമെന്റ് മേഖലക ളിൽ ഒഴികെ രാവിലെ ഏഴു മുതൽ രാത്രി ഏഴു വരെ ജില്ലവിട്ട് യാത്ര ചെയ്യുന്നതിന് നിലവിലുള്ള പാസ് സംവിധാനം ഇന്ന് മുതൽ നിർത്ത ലാക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു